കർഷകർക്ക് പ്രതിവർഷം ആറായിരംരൂപ അക്കൌ ിലെത്തും

വരുമാനത്തിലും നികുതിദായകരുടെ എണ്ണത്തിലും വൻ വർദ്ധന

വൃവസായ വൽക്കരണത്തിന് ആക്കം കൂട്ടുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ധനമന്ത്രി പീയുഷ് ഗോയൽ

അനുവദിച്ച തുക മൂന്ന് ലക്ഷം കോടി രൂപ കവിഞ്ഞു റെയിൽവേയ്ക്ക് ഒന്നരലക്ഷം കോടി രൂപ

ഇന്ന് കേരളത്തിലെത്തും

രാജൃം സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ്

ആദായനികുതി പരിധിയിൽ വൻ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

വോയിസ് ഈ സാമ്പത്തിക വർഷം നിലവിലെ നിരക്കുകൾ തുടരുമെന്നും റിബേറ്റ് പിന്നീടെന്നും മന്ത്രി വൃക്തമാക്കി

ഭൌതിക സാമൂഹൃ അടിസ്ഥാന സൌകരൃ വികസനം ഡിജിറ്റൽ സമ്പദ്ഘടന സമ്പൂർണ്ണമാക്കൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിലൂടെ മലിനീകരണമില്ലാത്ത രാജ്യം വൻതോതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ നദികൾ ശുദ്ധീകരിച്ച് സുരക്ഷിതമായ കുടിവെള്ളവും ജലസേചനവും ഉറപ്പാക്കൽ എന്നിവ ഇതിലുൾപ്പെടുന്നു

കള്ളപ്പണത്തിനും അഴിമതിക്കും എതിരായ നടപടികൾ തുടരുമെന്നും ധനമന്ത്രി ഉറപ്പ് നൽകി കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

വിശദാംശങ്ങളുമായി കവിത പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം ര ് ഹെക്ടറിൽ താഴെ ഭൂമിയുള്ള കർഷകർക്കാണ് ധനസഹായം ലഭിക്കുക

അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി മെഗാ പെൻഷൻപദ്ധതി ഉൾപ്പെടെ നിരവധി ക്ഷേമ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്

വിശദാംശങ്ങളുമായി സുരേഷ് പ്രധാൻ മന്ത്രി ശ്രം യോഗി മൻധൻ എന്ന പേരിൽ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മൂവായിരം രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും

മാസം തോറും നൂറ് രൂപ നിക്ഷേപിച്ച് തൊഴിലാളികൾക്ക് പദ്ധതിയിൽ ചേരാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കും നിത്യവരുമാനക്കാരായ രാജ്യത്തെ കോട്ടിക്കിണ്ക്കിന് ആളുകൾക്ക് ഗുണം ചെയ്യുന്നതാണ് പദ്ധതി

വിവിധ മേഖലകളുടെ പുരോഗതി ഉറപ്പാക്കുന്ന് നീര്യ്ഥി പദ്ധതികളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ശ്രീ ശ്രീധരൻപിള്ള ആകാശവാണിയോട് പറഞ്ഞു

വെങ്കയ്യ നായിഡു ഇന്ന് കേരളത്തിലെത്തും

വി തോമസ് എം

യുടെ ഫ ിൽ നിന്നും വിദ്യാധനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഇ ബുക്ക് റീഡറുകളുടെ വിതരണോദ്ഘാടനം ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിൽ നിർവ്വഹിക്കും നാളെ കോട്ടയത്തേക്ക് തിരിക്കുന്ന അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിൽ സംബന്ധിക്കും